മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും

പഠനത്തിന് ദേശീയ വാതോർജ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി അനെർട്ട് ധാരണാപത്രം ഒപ്പിട്ടു

വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഹെൽത്ത് ന് കോർണറുകൾ സ്ജീകരിക്കാൻ തീരുമാനം

കാസർകോട്ടെ കാഞ്ഞങ്ങാട്ട് തിരി തെളിഞ്ഞു

നാളെ തുടക്കമാകും

ഗോവയിലെ പനാജിയിൽ ഇന്ന് സമാപനം

മുംബൈയിലെ ശിവജി പാർക്കിൽ വൈകിട്ടാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ശിവസേന എൻ സി പി കോൺഗ്രസ്സ് സഖ്യം തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉദ്ധവ് താക്കറയെ കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുത്തത്

സി

നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനുള്ള സമയപരിധി ഡിസംബർ മൂന്ന് വരെയാണ് ശ്രീ ഉദ്ധവ് താക്കറെയ്ക്ക് ഗവർണർ ഭഗത് സിങ് കോഷിയാരി നൽകിയിട്ടുള്ളത്

ജെ പി ദേശീയ പ്രസിഡന്റ് അമിത്ഷാ ഛത്രയിലും ഗഡ്വയിലും ഇന്ന് തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും അനെർട്ട് ഇൻട്രൊ പാരമ്പര്യേതര സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതോൽപ്പാദനം വർധിപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമായി സംസ്ഥാനത്ത് കാറ്റിന്റെ സമഗ്രഭൂപടം തയ്യാറാക്കാനായി അനെർട്ട് കേന്ദ്ര ഗവേഷണ സ്ഥാപനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിൻഡ് എനർജിയുമായി ധാരണപത്രം ഒപ്പിട്ടു കൂടുതൽ വിവരങ്ങളുമായി അർച്ചന സതീഷ് തിരുവനന്തപുരം മാസ്ക്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ വൈദ്യുതി മന്ത്രി എം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സി റോഡിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളജ് മഹാത്മാഗാന്ധി സർവകലാശാല എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര മേൽപ്പാലം പൂർത്തിയാകുന്നതോടെ സുഗമമാക്കും

പുലർച്ചെ അഞ്ചരയോടെയായിരുന്നു അപകടം തലശ്ശേരിയിലേക്ക് പോയ ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടത് അഗ്നിശമന സേനയും പോലീസും രക്ഷാപ്രവർത്തനം നടത്തി

കൊട്ടാരക്കര പോലീസാണ് ബസ്സ് കസ്റ്റഡിയിൽ എടുത്തത് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കും ഡ്രൈവറെ പൊലീസ് അറസ്റ്റ് ചെയ്തു

ബസ് കസ്റ്റഡിയിൽ എടുത്തെന്നും തുടർനടപടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പുത്തൂർ എസ്

അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കന്ററി സ്കൂളിലും കൊട്ടാരക്കര വെണ്ടാർ വിദ്യാധിരാജ സ്കൂളിലുമാണ് കഴിഞ്ഞ ദിവസം സമാന സംഭവങ്ങൾ അരങ്ങേറിയത്

കൌമാര കേരളത്തിന്റെ കലാമാങ്കത്തിന് സപ്തഭാഷാ സംഗമ ഭൂമിയിൽ ആവേശഭരിതമായ തുടക്കം പ്രൌഡഗംഭീരമായ സദസിനെ സാക്ഷിയാക്കി സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തു

തന്നെ ഇത്ര വലിയ സാംസ്കാരിക സമന്വയത്തിന്റെ ലോകത്തു പ്രഖ്യാപനം നടക്കുന്ന വേദി വേറെ ഉണ്ടാവില്ലെന്ന് സ്പീക്കർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എല്ലാ കലാരൂപങ്ങളുടെയും സർഗഭാവങ്ങളുടെയും സംഗമമാണ് കലോത്സവം അത് രക്ഷിതാക്കളുടെ മത്സരത്തിനും അപ്പീലുകൾക്കുമുള്ള വേദിയല്ലെന്നും സ്പീക്കർ ഓർമ്മിപ്പിച്ചു

മത്സരങ്ങൾ വിജയിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ലെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായ നടൻ ജയസൂര്യ പറഞ്ഞു മറ്റൊരാളെ തോൽപ്പിക്കാനല്ല സ്വയം കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടതെന്ന് ജയസൂര്യ പറഞ്ഞു

രവീന്ദ്രനാഥ് ഇ ചന്ദ്രശേഖരൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രതിപക്ഷ ഉപനേതാവ് എം

മുനീർ രാജ്മോഹൻ ഉണ്ണിത്താൻ എം

രാവിലെ എട്ട് മണ്ണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻബാബുവാണ് കലോത്സവ നഗരിയിൽ പതാക കെ ഉയർത്തിയത്

കലോത്സവം ട്രെയിൻ സ്കൂൾ കലോത്സവം പ്രമാണിച്ച് രാജധാനി എക്സ്പ്രസ് ഒഴികെ എല്ലാ ട്രെയിനുകൾക്കും കാസർകോട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്

ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും

ഡിസംബർ അവസാനത്തോടെ ഇവ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു

ഉച്ചയ്ക്കുശേഷം നടക്കുന്ന സമാപന ചടങ്ങിൽ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പങ്കെടുക്കും

ഇറാനിയൻ ചലച്ചിത്രകാരൻ മൊഹ്സീൻ മക്മൽബഫ് ഒരുക്കിയ മാർഗി ആന്റ് ഹെർ മദർ ആണ് സമാപന ചിത്രം